ഇന്ന് വൈകിട്ട് സർവകക്ഷി യോഗം

തുടർച്ചയായ വർദ്ധന

നടപടികൾ രണ്ടാം ദ്ദീവസവും തുടരുന്നു

പരക്കെ ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യത

ദിവസവും നേട്ടം

സൺ റൈസേഴ്സ് ഹൈദരാബാദ് മത്സരം

കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചരൃത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തി വന്നിരുന്ന ആൾക്കൂട്ട സമരങ്ങൾ യു

എഫ് താൽക്കാലികമായി നിർത്തിവച്ചു

ഒക്ടോബർ ഒന്നിന് ആരംഭിക്കുന്ന അഞ്ചാം പ്ലെട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന അൺലോക്ക് നാലാം ഘട്ടത്തിൽ ക്മുട്ടോ സർവീസുകൾ പുനരാരംഭിക്കാനും ഷോപ്പിങ് മീളുകൾ റെസ്റ്റോറന്റുകൾ ബാർബർ ഷോപ്പുകൾ തുടങ്ങിയവ തുറക്കാനും അനുമതി നൽകിയിരുന്നു

കോവിഡ് പോർട്ടൽ കോവിഡ് വാക്സിൻ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്ന പോർട്ടൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ആരംഭിച്ചു ഐ സി എം

നാല് മാസത്തിനകം പൊളിക്കൽ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷ

ബി ഐ നിർദ്ദേശം നൽകി ഇന്നലെ നഗരസഭാ കാര്യാലയത്തിൽ പരിശോധന നടത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച രേഖകൾ പിടിച്ചെടുത്തിരുന്നു അതേസമയം പദ്ധതിയുടെ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ലിൻസ് ഡേവിഡിനെ സി ബി ഐ ചോദ്യം ചെയ്യുകയാണ് മഞ്ചേരി കാരണം കാണിക്കൽ നോട്ടീസ് കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശിനിയായ പൂർണ്ണ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് മഞ്ചേരി മെഡിക്കൽ കോളജ് സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ജില്ലാ ദുരന്തനിവാരണ് അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറാണ് കാരണം കാണ്ണിക്ക്ൽ നോട്ടീസ് നൽകിയത്

എല്ലാ ട്രെയിനുകൾക്കും തിരുവല്ലയിൽ സ്റ്റോപ്പുണ്ട്

ഒരു സ്ത്രീയടക്കം നാല് പേർ പിടിയിൽ

പെൺകുട്ടികൾക്ക് പ്രധാൻമന്ത്രി ബാലികാ ഗ്രാന്റ് യോജന എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന പരാമർശം വ്യാജമാണെന്ന് പി ഐ ബി വ്യക്തമാക്കി

കോഴിക്കോട് മാനാഞ്ചിറ ടൌൺഹാളിലാണ് നറുക്കെടുപ്പ്

സി കോവിഡ് വ്യാപനത്തെ തുട്ടർന്ന് പി എസ് സി പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി എടുക്കു്ന്നതിന് പി എസ്

ഇതു സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പി

സി പുറത്തിറക്കി

കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ് വിശിഷ്ടാതിഥിയാകും

ഹോംസ്റ്റെ ഉടമയും സുഹൃത്തുക്കളുമാണ് ക്കോലഞ്ചേരിയിലെ സ്വകാരൃ മെഡിക്കൽകോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്

സ്വർണവിലയിൽ വർധന രേഖപ്പെടുത്തി

എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം

ദുബായിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് തോൽപ്പിച്ചു

ഓഫീസ് അണുവിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു

ഒരു ജീവനക്കാരന് കോവിഡ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് അണുനശീകരണത്തിനായി ഓഫീസ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്